മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചു

ലോക്സഭയിൽ കേന്ദ്രമന്ത്രി പ്രതാപ് ചന്ദ്ര സാീര്യഗിയാണ് പ്രമേയം അവതരിപ്പിച്ചത്

രാഷ്ട്രപതിയുടെ പ്രസംഗം മോദി ഗവണ്മെന്റിന്റെ ദൃഢ നിശ്ചയത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത ആധിർ രഞ്ജൻ ചൌധരി യുപിഎ ഗവണ്മെന്റിന്റെ പദ്ധതികളാണ് പേരുമാറ്റിട്ട എൻഡിഎ ഗവണ്മെന്റ് അവതരിപ്പിച്ചതെന്ന് ആരോപിച്ചു സാമ്പത്തിക രംഗത്തുള്ള അസ്ഥിരതയും തൊഴിലില്ലായ്മയെ കുറിച്ചു ഗവണ്മെന്റിന്റെ നയം വൃക്തമാക്കണമെന്നും ശ്രീ

ബാലു ടി

സിയിലെ സൌഗതറോയ് തുടങ്ങിയവരും നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു

ആർ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച മിഥുൻ റെഡ്നി ആന്ധ്രാപ്രദേശ് പുനഃസംഘടന വൃവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നടപിടിയെടുക്കാൻ ഗവണ്മെന്റിനോട് ആവശ്യപ്പെട്ടു ബിജെപി ബി

പി ജെ

യു ടി

രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ രാജ്യസഭാ എം

ട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രാധാന്യം കഴിഞ്ഞ അഞ്ച് പ്പർഷങ്ങൾകൊണ്ട് വലിയ രീതിയിൽ വർദ്ധിച്ചതായി ശ്രീ

പിന്നീട് സംസാരിച്ച കോൺഗ്രസ് നേതാവ് ഗുലാം നബീപ് ആസാദ് ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുണ്ണതിനുള്ള നടപടികൾ സ്വീകരിക്കണമന്ന് ആവശ്യപ്പെട്ടു ന്യൂസ് ഡസ്ക് ആകാശ്ചാണി

ഇന്ത്യൻ ടെലഗ്രാഫ് ആക്റ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം എന്നിവ ഭേദഗതി വരുത്തി ആധാർ നിയമവുമായി ബന്ധിപ്പിച്ചാണ് പുതിയ കരട് നിയമം കൊണ്ടുവന്നത് ജമ്മു കാശ്മിർ സംവരണ നിയമം പ്രത്യേക സാമ്പത്തിക മേഖലാ നിയമം എന്നീ ബില്ലുകളും ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു

നിലവിൽ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതികളെപ്പറ്റി പഠിച്ചശേഷം കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ നിർദ്ദേശ പ്രകാരമാണ് പുതിയ നയത്തിന് രൂപം നൽകിയിരിക്കുന്നത് ജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചശേഷം മാത്രമേ നയം പൂർണ്ണ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുള്ളൂവെന്ന് മന്ത്രി വൃക്തമാക്കി

ഇത്തരത്തിൽ കേന്ദ്രീകൃത സംവിധാനം നിലവിൽ വരുമ്പോൾ ഈ മേഖലയിലെ പല തട്ടിപ്പുകളും തടയാനാക്കൂമിന്നും ശ്രീ ഗഡ്കരി അഭിപ്രായപ്പെട്ടു

സൂക്ഷ്മ ചെറുകിട ഇടത്തരം വൃവസായ മേഖലയ്ക്ക് മികച്ച വായ്പാ സൌകര്യങ്ങളും നൈപുണ്യ വികസന പരിപാടികളും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പ്രോത്സാഹനവും മറ്റും ലഭ്യമാക്കി ഈ മേഖലയെ പോഷിപ്പിക്കുന്നതിന് നിരവധി നൂതന പദ്ധതികൾ കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകത്വ മന്ത്രാലയത്തിന്റെ കീഴിൽ നടന്നു വരുന്നതായി ചോദൃത്തിനുള്ള മറുപടിയായി മന്ത്രി രാജ്യസഭയെ അറിയിച്ചു

സുബ്ബരാമി റെഡ്ഡി രാജ്യസഭയിലെ ശൂന്യവേളയിൽ പ്രശ്നം ഉന്നയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐകൃരാഷ്ട്രസഭാ കണക്കുകൾ ഉദ്ധരിച്ച അദ്ദേഹം ജനസംഖൃ വർദ്ധനവ് നിയന്ത്രിക്കാൻ എത്രയും വേഗം നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി രഞ്ജിത്ത്

ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വാസ്കോസിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എല്ലാ ഭവനങ്ങളിലും പൈപ്പ് വെള്ളം എത്തിക്കാനുള്ള കേന്ദ്ര പദ്ധതി സ്വച്ഛ്ഭാരത് പദ്ധതി പോലെ വൻ വിജയമാകുമെന്ന് സഹമന്ത്രി രത്തൻലാൽ കട്ടാരിയ പറഞ്ഞു വാപ്കോസിലെ ജീവനക്കാരും നൂറുകണക്കിന് സന്നദ്ധ സംഘടനാപ്രവർത്തകരും മന്ത്രിമാരോടൊപ്പം യമുനാശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി

ന്യൂഡൽഹിയിൽ ഏഴാമത് പാസ്പോർട്ട് ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷ ഉറപ്പ് വരുത്തി പാസ്പോർട്ട് നടപടി ക്രമങ്ങൾ കൂടുതൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു പാസ്പോർട്ട് വിതരണത്തിൽ ഗവൺമെന്റ് നടപടികൾ ഇപ്പോൾ ജനങ്ങൾക്ക് അനുഭവ വേദ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു

വിശദാംശങ്ങളുമായി രഞ്ജിത്

റെയിൽവേ പൊലീസ് സൂപ്രണ്ട് രഞ്ജിത് സാംബിയാനാണ് ഇക്കാര്യം ജമ്മുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് തീർത്ഥാടകർക്ക് യാതൊരു ഭയവുമില്ലാതെ യാത്രയിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ജമ്മുവിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ട്രെയിനിലും ലെഗേജ് ഉൾപ്പെടെ പരിശോധന നടത്താൻ പരിശീലനം ലഭിച്ച സുരക്ഷാ സംഘത്തോടൊപ്പം ഡോഗ് സ്കാഡും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സുരക്ഷാ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംയുക്ത കൺട്രോൾ റൂം തീർത്ഥാടകർക്കായി സ്റ്റേഷനിൽ സജ്ജീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു

ഇതിനായി സിസിടിവി ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

അഫ്ഗാനിസ്ഥാനു വേണ്ടി മുജീബ് ഉർ റഹ്മാൻ മൂന്നും ഗുലാബ് ദിൻ നബി രണ്ടും വിക്കറ്റെടുത്തു ദൌലത്ത് സദ്ദ്റാൻ മുഹമ്മദ് നബി എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി

ഇരുവരെയും മികച്ച ഭാവി വാഗ്ദാനങ്ങളായും തെരഞ്ഞെടുത്തിട്ടുണ്ട്

കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോകസഭയിൽ രേഖാമൂലം അറിയിച്ചതാണിത്

നിതിൻ ഗഡ്ക്കരി രാജ്യസഭയെ അറിയിച്ചു

ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയ്ക്ക് വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിനും അധികാരത്തിനും അനുസൃതമായ നയതന്ത്രപരിവർത്തനത്തിലുള്ള ബ്രിട്ടന്റെ പരാജയമാണ് ഇതിന് കാരണമെന്നും ബിൽഡിംഗ് ബ്രിഡ്ജസ് ് റീ എവേക്കനിങ് യു കെ ഇന്ത്യ ടൈസ് എന്ന റിപ്പോർട്ടിൽ പ്പെയ്യുന്നു